്മ പ്രളയ ബാധിതരിൽ ഭേദപ്പെട്ട സാമ്പത്തിക ശേഷിയു ള്ളവർ ഗവൺമെന്റിന്റെ നഷ്ടപരിഹാരത്തിന് കാത്തു നിൽക്കരുതെന്ന് മന്ത്രി ഡോ

് പെട്രോൾ ഡീസൽ വില നിയന്ത്രിക്കാൻ ഉടൻ നടപടി യുണ്ടാകുമെന്ന് ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ

രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി ധനമന്ത്രിയുമായും മന്ത്രാലയത്തിലെ വകുപ്പ് മേധാവികളുമായും അദ്ദേഹം വില യിരുത്തി

മികച്ച നികുതി വരുമാനവും ഓഹരി വിൽപ്പനാ ലക്ഷ്യം നേടാനാവുമെന്ന പ്രതീക്ഷയുമാണ് ഗവൺമെന്റിനെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ പെട്രോളി ന്റെയും ഡീസലിന്റെയും തീരുവ കുറക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ ജെയ്റ്റ്ലി തയ്യാറായില്ല പ്രളയബാധിതരിൽ ഭേദപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ള വർ ഗവൺമെന്റിന്റെ നഷ്ടപരിഹാരത്തിന് കാത്തുനിൽക്ക രുതെന്ന് മന്ത്രി കെ ടി ജലീൽ നിർദ്ദേശിച്ചു മലപ്പുറത്ത് ദുരി താശ്വാസ ഫണ്ട് സമാഹരണ അവലോകന യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി നികുതിപ്പണത്തിൽ നിന്നല്ല സാധാരണക്കാർ പിരിച്ചുനൽകുന്ന പണത്തിൽ നിന്നാണ് ദുരിതാശാസ ഫണ്ട് നൽകുന്നത് ഈ ഫണ്ട് അർഹതയുള്ളവർക്ക് ലഭിക്കാൻ മറ്റുള്ളവർ സഹകരി ക്കണം അർഹതയില്ലാത്തവർ ധനസഹായം കൈപ്പറ്റിയാൽ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു

പ്രകൃതിക്ഷോഭത്തെത്തുടർന്ന് കേന്ദ്രം അനുവദിച്ച അരി ഏറ്റെടുക്കുന്ന നടപടി അടുത്ത ബുധനാഴ്ചയോടെ പൂർത്തി യാകുമെന്ന് മന്ത്രി പി തിലോത്തമൻ ചേർത്തലയിൽ പറഞ്ഞു ഗോഡൌണിന്റെ കുറവ് പരിഹരിച്ച് പ്രകരം സംവിധാനം ഏർപ്പെടുത്താൻ സമയം വേണമെന്ന ആവശ്യം കേന്ദ്രം അനു വദിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ഗവൺമെന്റിന്റെ സാലറി ചലഞ്ച് പിടിച്ചുപറിക്കലായി മാറി യെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കാഞ്ഞങ്ങാട്ട് ആരോപിച്ചു പ്രളയ ദുരിത ബാധിതർക്ക് നൽകുമെന്നറിയിച്ച പതിനായിരം രൂപ ഇപ്പോഴും പലർക്കും കിട്ടിയിട്ടില്ല സഹക രണ സ്ഥാപനങ്ങളുടെ ലാഭവിഹിതം ദുരിതാശ്ചാസ നിധിയി ലേക്ക് നൽകണമെന്ന് പറയുന്നതിനോട് യോജിപ്പില്ലെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു

വി ജോസ് അറിയിച്ചു നിധിയിലേക്ക് ഉദാര സംഭാ വന നൽകിയവരോട് മന്ത്രി ടി

ഇന്ന് അമ്പലപ്പുഴയി ലാണ് ധനസമാഹരണ യജ്ഞം

ബ്ലോക്ക് കേന്ദ്രങ്ങളിലാണ് തുക ഏറ്റു വാങ്ങുന്നത് ജില്ലയിൽ ക്യാമ്പുകളിൽ കഴിയേണ്ടിവന്നവർക്കും മാറി താമസിച്ചവർക്കും അടിയന്തിര ആശ്ചാസ ധനസഹായ വിതരണം പൂർത്തിയായി

എറണാകുളം ജില്ലയിൽ പ്രളയ ബാധിത മേഖലകളിലെ നഷ്ടം വിലയിരുത്താൻ ലോകബാങ്ക് എ ഡി

പറവൂർ ആലുവ കൊച്ചി കുന്ന ത്തുനാട് മൂവാറ്റുപുഴ താലൂക്കുകളിലായിരുന്നു സന്ദർശനം പ്രളയക്കെടുതിയിൽ മലപ്പുറം ജില്ലയിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്താനെത്തിയ ലോകബാങ്ക് ഏഷ്യൻ വികസന ബാങ്ക് സംഘം പരിശോധന പൂർത്തിയാക്കി സംഘം വിശദ മായ റിപ്പോർട്ട് ഈയാഴ്ച ഗവൺമെന്റിന് സമർപ്പിക്കും പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വില്ലേജുകളേയും പ്രളയ ബാധിത വില്ലേജുകളായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു

ഉരുൾപൊട്ടലിനെത്തുടർന്ന് തകർന്ന കണ്ണൂർ കൊട്ടിയൂർ പാൽചുരം റോഡ് നാളെ മുതൽ താൽക്കാലികമായി ഗതാഗ തത്തിന് തുറന്നുകൊടുക്കും

അമ്പായത്തോട് മുതൽ ബോയ്സ് ടൌൺ വരെ പാൽചുരം റോഡിൽ മൂന്നര കിലോമീറ്ററിലേറെ റോഡ് ഉരുൾപൊട്ടലിൽ തകർന്നിരുന്നു പെട്രോളിന്റെയും ഡീസലിന്റെയും വില് നിയന്ത്രിക്കാൻ കേന്ദ്രം അടുത്തുതന്നെ നടപടിയെടുക്കുമെന്ന് ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ ഹൈദരബാദിൽ പറഞ്ഞു ഇക്കാര്യ ത്തിലെ ജനവികാരം പാർട്ടി ഉൾക്കൊള്ളുന്നതായി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടുത്ത വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോ ടിയായി കോൺഗ്രസ് ഏകോപന സമിതി ചെയർമാനായി എ

തെരഞ്ഞെടുപ്പ് തന്ത്ര രൂപീക രണത്തിലും പ്രചാരണത്തിലും കോർകമ്മിറ്റി അധ്യക്ഷനായ തോടെ ആന്റണിക്ക് നിർണായക ചുമതല ലഭിച്ചു പ്രകടന പത്രികാ ചെയർമാനായി പി ചിദംബരത്തെയും പ്രചാരണ സമിതി ചെയർമാനായി ആനന്ദ് ശർമ്മയെയും നിയമിച്ചിട്ടുണ്ട് ആന്ധ്രപ്രദേശിലെ ഗുണ്ടൂരിൽ ദക്ഷിണ മേഖല ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ കേരളം മുന്നേറുന്നു

സാഫ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യയെ തോൽപ്പിച്ച് മാലി ദ്വീപ് ചാമ്പ്യന്മാരായി ധാക്കയിൽ ഒന്നിനെതിരെ രണ്ട് ഗോളു കൾക്കാണ് മാലിദ്വീപിന്റെ വിജയം ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിന് ജയം

ടൂർണ്ണമെന്റിൽ പാക്കിസ്ഥാൻ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും കൊച്ചി മെട്രോയുടെ പേട്ട തൃപ്പൂണിത്തുറ ഭാഗത്തിന്റെ നിർമ്മാണത്തിന് ധന സഹായം ലഭ്യ മാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചതായി മെട്രോ അധികൃതർ കൊച്ചിയിൽ അറിയിച്ചു കൊച്ചി മെട്രോയുടെ ഡൽഹിയിൽ ചേർന്ന ബോർഡ് യോഗത്തിലാണ് ഈ തീരുമാനം

കന്നിമാസ പൂജകൾക്കായി ശബരിമലയിൽ ഇന്ന് വൈകിട്ട് അഞ്ചിന് നട തുറക്കും നാളെ പുലർച്ചെ മുതൽ പതിവ് പൂജ കൾ തുടങ്ങും അടുത്ത ഒരു വർഷത്തെ താന്ത്രിക ചുമതല തന്ത്രി കണ്ഠരർ രാജീവർ ഇന്ന് ഏറ്റെടുക്കും

സ്വകാര്യ തീർത്ഥാടക വാഹനങ്ങൾ നിലയ്ക്കൽ വരെ മാത്രമേ അനുവദിക്കൂ

ശബരിമലയിൽ കുന്നിമാസ പൂജ കൾക്കായി ഇന്ന് നട തുറക്കുന്നത് പരിഗണിച്ചാണ് പ്രത്യേക സർവ്വീസ് കേന്ദ്രത്തിലും കേരളത്തിലും ഏകാധിപത്യ ഭരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു ദീർഘ കാലത്തേക്ക് ചികിത്സക്കായി വിദേശത്തേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി ആർക്കും ചുമതല നൽകാത്തത് ശരിയായില്ലെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ യു ഡി എഫ് സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല

നാളെ മുതൽ ഇതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങും

ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ മെഡലുകൾ നേടിയ ജിംസൺ ജോൺസണും വി നീനയ്ക്കും മുൻ കോച്ച് കെ

സ്വീകരണ ചടങ്ങ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സൌമൃതയും വിനയവുംകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട നേതാവാണ് ഒ രാജഗോപാൽ എന്ന് മന്ത്രി എ

ബാലൻ പറഞ്ഞു രാജഗോപാലിന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി മണപ്പാട് നിർമ്മിച്ച നവതി സ്മൃതിമണ്ഡപ സമർപ്പണ ചടങ്ങിൽ സംസാരിക്കുകയായി രുന്നു മന്തി ദുരിതാശ്ചാസ വിതരണത്തിലെ വിവേചനം അവസാനിപ്പി ക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കാസർകോട് ജില്ലാ കമ്മിറ്റി നാളെ കലക്ടറേറ്റ് പരിസരത്ത് പ്രതിഷേധ ധർണ നടത്തും ദുരിതാശ്ചാസ വിതരണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തി യാക്കണമെന്നും ജില്ലയിലെ കാർഷിക നഷ്ടങ്ങൾക്ക് അടി യന്തര ധനസഹായം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു ഇടുക്കി ജില്ലയിലെ ഓഫ് റോഡ് ജീപ്പ് സവാരി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ മേൽനോട്ടത്തിൽ നട ത്താൻ തീരുമാനമായി ഇത്തരം വാഹനങ്ങൾ അടുത്ത ബുധ നാഴ്ചക്കകം ആർ ടി ഒ ഓഫീസിൽ നിന്ന് അനുമതിയും സ്റ്റിക്ക റുകളും വാങ്ങണമെന്ന് ഡി ടി

സി സെക്രട്ടറി അറിയിച്ചു കൊച്ചി വല്ലാർപാടം പള്ളിയിലെ പരിശുദ്ധ വല്ലാർപാട ത്തമ്മയുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാവും വരാപ്പുഴ മെത്രോപ്പൊലീത്ത ഡോ ജോസഫ് കളത്തിപ്പറമ്പിൽ തിരുനാൾക്കൊടി ഉയർത്തും

അങ്കമാലി കെ എഫ് ബി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റോജി

ജോൺ എം എൽ എ കിറ്റുകൾ കൈമാറും